ലക്ഷം പിന്നിട്ട് പ്രതിദിന കണക്കുകൾ

കോവിഡ് മെഗാ ടെസ്റ്റിൽപ്പ്ക്ക്ടുത്തത് രണ്ടര ലക്ഷത്തിലധികം പേർഷ കോവിഡിനെ പ്രത്യിരോധിക്കാൻ സംസ്ഥാനമെങ്ങും ന് കനത്ത നിയന്ത്രണ്ം

തീരുമാനം നാളെ ഐപിഎല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

മത്സരത്തിൽ ബാംഗ്ലൂൾ കൊൽക്കത്തയേയും രണ്ടാം മത്സരത്തിൽ ഡൽഹി പഞ്ചാബിനെയും നേരിടും

ദേവരാജ് ആകാശവാണിയോട്

വെള്ളി ശനി ദിവസങ്ങളിലായാണ് സംസ്ഥാനമെങ്ങും വ്യാപക പരിശോധന നടത്തിയത് രണ്ടര ലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്താനായിരുന്നു മുഖ്യമന്ത്രിയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന അവലോകനയോഗത്തിൽ തീരുമാനിച്ചത്

ഉയർന്ന കോവിഡ് വ്യാപന മേഖലകളിൽ മൊബൈൽ ആർടിപിസിആർ ടെസ്റ്റിംഗ് യൂണിറ്റുകൾ ഉപയോഗിച്ചും പരിശോധന നടത്തി

തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തിരക്കുളള സാഹചര്യങ്ങളിൽ ഇടപഴകിയവർ രോഗലക്ഷണങ്ങൾ ഉളളവർ രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർ തുടങ്ങി രോഗബാധിത്രിക്ടാൻ സാധ്യതയുളള എല്ലാവരും തുടർന്നുളള ദിവസ്ട്ട്ളിലും പരിശോധനയ്ക്ക് സന്നദ്ധരാകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർഥിച്ചു

കൊല്ലം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് കളക്ടർമാർക്ക് പുറമെ സിവിൽ സർവ്വീസ് ഉദ്യോഗസ്ഥരെ ഡവലപ്മെന്റ് കമ്മീഷണർമാരായി നിയമിച്ചത്

ദ്വീപിലെത്തുന്നവർ ഏഴു ദിവസം ക്വാറന്റൈൻ കഴിയണമെന്നും നിർദ്ദേശമുണ്ട്

മുരളീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കൊവിഡിയറ്റ് പരാമർശത്തിൽ തെറ്റില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ജനങ്ങളുടെ ജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പെരുമാറിയതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

കോവിഡ് വ്യാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച പ്രതിരോധ നടപടികളെ തുടർന്നാണ് തീരുമാനം

ത്തുമാനം സൂചിപ്പിച്ച് മേഖലാ ജനറൽ മാനേജർമാർക്ക് കേന്ദ്ര റെയിൽവെ മന്ത്രാലയം കത്തയച്ചു അടുത്ത ആറ് മാസത്തേക്കാണ് പുതിയ തീരുമാനം

വിവാഹം ഗൃഹപ്രവ്യേൾട് തുടങ്ങിയ ചടങ്ങുകൾ നടത്താൻ കോവിഡ് ജാഗ്രതാ പ്പോർട്ടലിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യണം

ഇതുമായി ബന്ധപ്പെട്ട് കർശന പരിശോധനയ്ക്കും നിർദ്ദേശമുണ്ട്

സിറ്റി നിയന്ത്രണങ്ങൾ പോലീസ് കമ്മീഷണർ നേരിട്ടിറങ്ങി മാളുകളിലും കടകളിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർബാബു

കണ്ണൂർ ചീമേനി ജയിലുകളിൽ അന്തേവാസികൾക്ക് ക്കോപിഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി അന്തേവാസികളുമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആശയവിനിമയം നടത്താൻ അനുവദിക്കുമെന്ന് ജയിൽ ഡിജിപി ഋഷിരാജ് സിംഗ് അറിയിച്ചു

ചീഫ് സെക്രട്ടറിയുമായി ദേവസം ഭാരവാഹികളും കളക്ടറും പൊലീസും നാളെ വീണ്ടും ചർച്ച നടത്തും കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പൂരം നടത്തിപ്പിന്റെ ഭാവി തീരുമാനിക്കാൻ ഇന്നും യോഗം ചേർന്നിരുന്നു അതേസമയം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പൂരം നടത്തിപ്പിന് തടസ്സമാകുമെന്ന് ദേവസ്വങ്ങൾ അറിയിച്ചു കോവിഡിന്റെ പേരിൽ പൂരം മുടക്കാൻ അനാവശൃ ഭീതി പരത്തുന്നതായി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ആരോപിച്ചു ജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിൽ ഡി എം ഒ വീഡിയോ പുറത്തിറക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും സെക്രട്ടറി ജി

ഉടമ അറസ്റ്റിൽ മലപ്പുറം എടക്കരയിൽ വളർത്തു നായയെ സ്കൂട്ടറിൽ കെട്ടിവലിച്ച സംഭവത്തിൽ ഉടമ അറസ്റ്റിൽ

മൃഗസ്നേഹികളുടെ സംഘടന സാലികണ്ണന്റെ നേതൃത്വത്തിൽ എടക്കര പൊലീസിൽ പരാതി നല്കിയിരുന്നു

വ്യാപക തെരച്ചിൽ കാക്കനാട് മുട്ടാർപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വൈഗയുടെ പിതാവ് സനുമോഹനെ കണ്ടെത്താൻ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര നഗരിയിൽ പൊലീസിന്റെ വ്യാപക തെരച്ചിൽ ഇയാൾ ഉടൻ പിടിയിലാകുമെന്ന് കൊച്ചി സിറ്റി പൊലീസ് കമ്മീഷണർ സി

കർണാടകയിലെ റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും ജാഗ്രതാനിർദ്ദേശം നല്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞൂ

സംഭവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് വനത്തുമുക്ക് സ്വദേശി ലൈബു ഏരൂർ പോലീസിന്റെ പിടിയിലായി ഉത്തരവ് കണ്ണൂർ കണ്ണൂർ പാനൂരിൽ മുസ്ലീംലീഗ് പ്രവർത്തകൻ മൻസൂറിനെ കൊലപ്പെടുത്തിയ കേസൽ റിമാൻഡിൽ കഴിയുന്ന എട്ട് പ്രതികളെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡൊണാൾഡ് സെക്കേരയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്